അഴിമതിക്കെതിരെ സംസ്ഥാനിത്ത് പുതിയ സംസ്കാരം വളർന്നുവരുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണ റായി വിജയൻ ജമ്മു കശ്മീരിലെ കുപ്പാഡ്യിൽ പാക്കിസ്ഥാൻ വെടിവെയ്പിൽ രണ്ട് ജവാന്മാർക്ക് വീരമൃത്യു ഭീകര ക്യാമ്പുകൾക്കുനേരെ ഇന്ത്യൻ സേന തിരിച്ചടിച്ചു

കണ്ണൂരിൽ തുടക്കമാവും ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അവസാന ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ കൂറ്റൻ സ്കോറിലേക്ക്

എസ് എൽ ഫുട്ബോൾ ആറാം സീസണ് വൈകിട്ട് കൊച്ചിയിൽ തുടക്കം

രാവിലെ ഏഴിന് വോട്ടെടുപ്പ് ആരംഭിക്കും സ്ഥാനാർത്ഥികളും പ്രവർത്തകരു മണ്ഡ ലങ്ങളിൽ അവസാനവട്ട നിശ്ശബ്ദ പ്രചാരണത്തിലാണ് മഞ്ചേശ്വരം എറണാകുളം അരൂർ കോന്നി വട്ടി യൂർക്കാവ് മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പിന് ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെത്തി

ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന അഞ്ചിടത്തും മൂന്ന് മുന്നണികളും വിജയു പ്രതീക്ഷയിലാണ് അഞ്ച് മണ്ഡലങ്ങളിൽ നാലും യു ഡി എഫിന്റേതായിരുന്നു അരൂർ മാത്രമായിരുന്നു എൽ ഡി

മഹാരാഷ്ട്രയിലെ സത്താറ ബീഹാറിലെ സമസ്തിപൂർ സീറ്റുകളിലാണ് ലോക്സഭാ ഉപതെരഞ്ഞെ ടുപ്പ് മഹാരാഷ്ട്ര ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പും നാളെയാണ് നാളത്തെ വോട്ടെടുപ്പിനു ശേഷം വ്യാഴാഴ്ചയാണ് വോട്ടെണ്ണൽ

വോട്ടവകാശമുള്ളവർക്ക് വോട്ട് ചെയ്യാൻ അവസരമൊരുക്കണമെന്ന് അദ്ദേഹം സർക്കുലറിൽ ആവ ശ്യപ്പെട്ടു അഴിമതിക്കെതിരെ പുതിയ സംസ്കാരം സംസ്ഥാനത്ത് വളർന്നു വരുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

കണ്ണൂർ മട്ടന്നൂരിൽ നിർമ്മിക്കുന്ന റവന്യൂ ടവറിന്റെയും സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെയും ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓഫീസുകൾ നന്നാവുമ്പോൾ ജനങ്ങൾക്ക് നൽകുന്ന സേവനവും മികച്ചതാകണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെ ട്ടു ജമ്മു കശ്മീരിലെ കുപ്വാഡയിൽ പാക്കിസ്ഥാൻ അതിർത്തി ലംഘിച്ച് നടത്തിയ വെടിവെയ്പിൽ രണ്ട് ഇന്ത്യൻ സൈനികർക്ക് വീരമൃത്യു

ഇതേത്തുടർന്ന് ഇന്ത്യൻ സേന പാക് അധീന കശ്മീരിലെ ഭീകര ക്യാമ്പുകൾക്ക് നേരെ പ്രത്യാക്രമണം നടത്തി താങ്ധാർ സെക്ടറിന് സമീ പത്തെ ഭീകരവാദി കൃാമ്പുകൾക്കുനേരെ രാവിലെയാണ് ഇന്ത്യൻ സൈന്യം പ്രത്യാക്രമണം നടത്തിയതെന്ന് എ

ഐ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു പാക് വെടിവെയ്പിൽ രണ്ട് വീടുകൾ തകർന്നു നുഴ ഞ്ഞുകയറ്റക്കാരെ നിയന്ത്രണരേഖ കടത്തിവിടാനായി രുന്നു പാക് സേനയുടെ വെടിവെയ്പ് സാമ്പത്തിക മാന്ദ്യം അതിജീവിച്ച് ആഗോള സാമ്പ ത്തിക വളർച്ച ത്വരിതപ്പെടുത്താൻ വേണ്ട നടപടികൾ കൈക്കാ ള്ളാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധ മെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു

സാമ്പത്തികമാന്ദ്യ വെല്ലുവിളികളെ അതിജീവിക്കാൻ വൃതൃസ്ത നയങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കു ന്നതെന്നും അവർ പറഞ്ഞു വാഷിങ്ടണിൽ അന്താ രാഷ്ട്ര നാണ്യനിധിയുടെ വാർഷിക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു നിർമ്മലാ സീതാരാമൻ കോഴിക്കോട് കൂടത്തായ് കൊലപാതക കേസിൽ ഷാജുവിന്റെ ആദ്യ ഭാര്യ സിലിയുടെ മരണവുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി പൊലീസ് റജിസ്റ്റർ ചെയ്ത കേസിൽ പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിപ്പിക്കാൻ നാളെ അപേക്ഷ സമർപ്പിക്കും

വാറണ്ട് പുറപ്പെടുവിച്ച ശേഷം പ്രതികളെ മറ്റന്നാൾ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡി അപേക്ഷ നൽകാനാണ് അധികൃതർ ആലോചിക്കുന്നത് കേസിൽ സിലിയുടെ മകനിൽ നിന്നും അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തിയിരുന്നു കേസിൽ നേരത്തെ താമരശ്ശേരി പൊലീസ് പ്രപ്രതി ചേർത്ത ജോളിയുടെ അറസ്റ്റ് കോടതിയുടെ പ്രത്യേക അനു മതിയോടെ ജില്ലാ ജയിലിലെത്തി രേഖപ്പെടുത്തിയിരുന്നു

സ്മഗ്ര ട്രോമാകെയർ പദ്ധ തിയുടെ ഭാഗമായി അനുവദിച്ച നൂറ് ആംബുലൻസു കൾ വൈകിട്ട് മന്ത്രി കെ കെ ശൈലജ ഫ്ളാഗ് ഓഫ് ചെയ്യും റോഡപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് അടിയന്തിര് ചികിത്സ ഉറപ്പുവരുത്താനാണ് സമഗ്ര ട്രോമാകെയർ പദ്ധതി നടപ്പാക്കുന്നത് അർഹതപ്പെട്ടവർക്കായി ആവശ്യമെങ്കിൽ ഇനിയും ചട്ടങ്ങൾ ലംഘിക്കേണ്ടി വന്നാൽ അത് തുടരുമെന്ന് മന്ത്രി കെ ടി ജലീൽ പറഞ്ഞു മുന്നിൽ വരുന്ന പ്രശ്നങ്ങളെ മനുഷ്യത്ഥപരമായി കാണും

ജി സർവ്വകലാശാലയിൽ ഏതാനും വിദ്യാർത്ഥികൾക്ക് മോഡറേഷൻ നൽകിയ സംഭവത്തിൽ അനധികൃതമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും മന്ത്രി മുക്കത്ത് വ്യക്തമാക്കി

പി മൊയ്തീൻ സേവാമന്ദിറിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു മന്ത്രി മഹാത്മഗാന്ധി സർവകലാശാല മാർക്ക് ദാന വിവാദവുമായി ബന്ധപ്പെട്ട് മന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുക്കത്ത് കരിങ്കൊടി കാണി ച്ചു പ്രതിഷേധക്കാരെ പൊലീസ് ലാത്തി വീശി ഓടിച്ചു റാഞ്ചിയിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ കൂറ്റൻ സ്കോറിലേക്ക് രോഹിത്ത് ശർമ്മ ഇരട്ട സെഞ്ചറി നേടി

ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോൾ ആറാം പതിപ്പിന് കൊച്ചിയിൽ വൈകിട്ട് തുടക്കമാകും കലൂർ ജവ ഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് ഉദ് ഘാടന ചടങ്ങ് ആദ്യ മത്സ രത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അത്ലറ്റികോ ഡി കൊൽക്കത്തയെ നേരി ടും രാത്രി ഏഴരയ്ക്കാണ് കിക്കോഫ് ഉദ്ഘാടന ചടങ്ങിൽ ബോളിവുഡ് താരങ്ങളും ബി

ഐ നിയുക്ത പ്രസിഡന്റ് സൌരവ് ഗാംഗു ലിയും ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുക്കും

വനിതാ വിഭാഗം ഫൈനലിൽ സിൽവർ ഹിൽസ് ഹയർ സെക്കന്റി സ്കൂൾ ഫിസിക്കൽ എജ്യുക്കേഷൻ കോളേജിനെ നേരിടും ഒറ്റപ്പാലത്ത് സംസ്ഥാന സ്പ്രെഷ്യൽ സ്കൂൾ കലോ ത്സവം ഇന്ന് സമാപിക്കും കാഴ്ച കേൾവി പരിമിതരുടെ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് ഇന്നലെ സമാപിച്ച മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ യു പി വിഭാഗ ത്തിൽ മലപ്പുറവും ഹൈസ്കൂൾ വിഭാഗത്തിൽ പാല ക്കാടും ജേതാക്കളായി സംസ്ഥാന സ്കൂൾ ഗെയിംസ് ടീം സെലക്ഷന് കണ്ണൂ രിലെത്തിയ കുട്ടികൾ കടത്തിണ്ണയിൽ അന്തിയുറങ്ങേണ്ടി വന്ന സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടു ത്തു മാധ്യമ റിപ്പോർട്ടുകളെത്തുടർന്ന് കമ്മീഷൻ ചെയർമാൻ പി സുരേഷ് സ്വമേധയാ കേസെടുക്കുകയാ യിരുന്നു വയനാട് ജില്ലാ പഞ്ചായത്ത് ബഹുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന കാരുണ്യ പദ്ധതി ജീവനം മറ്റന്നാൾ മന്ത്രി കെ

ശൈലജ കൽപ്പറ്റയിൽ ഉദ്ഘാടനം ചെയ്യും പദ്ധതിയിലേക്ക് കൂടുതൽ തുക സമാഹരിച്ച് നൽകിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വകുപ്പുകൾ സ്ഥാപനങ്ങൾ വ്യക്തികൾ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിക്കും സംസ്ഥാന ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കാൻ പതിനൊന്നാം ശമ്പള കമ്മീഷനെ ഉടൻ നിയമിക്കണമെന്ന് പാലക്കാട്ട് നടന്ന കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് സംഘ് സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു

എസ് സംസ്ഥാന പ്രസിഡന്റ് കെ

വിജയകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തുലാവർഷം അടുത്ത നാലുദിവസംകൂടി സംസ്ഥാ നത്ത് ശക്തമായിരിക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ സൂചിപ്പിച്ചു മലപ്പുറം പാലക്കാട് എറണാകുളം ഇടുക്കി പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ഇന്നും തിരുവനന്തപുരം കൊല്ലം ഇടുക്കി മലപ്പുറം വയ നാട് ജില്ലകളിൽ നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപി ച്ചു

നാളെവരെ കടലിൽ മീൻപിടി ക്കാൻ പോകരുതെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് മുന്ന റിയിപ്പ് നൽകിയിട്ടുണ്ട് പാലക്കാട് ജില്ലയിലെ മലമ്പുഴ വാളയാർ ഡാമുകളുടെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തിയതോടെ മുക്കൈ കല്പാത്തി ഭാരതപ്പുഴകളിലെ നീരൊഴുക്ക് ശക്തമായി പുഴകളിൽ ഇറങ്ങരുതെന്നും പാലങ്ങളി ലൂടെയുള്ള യാത്ര ശ്രദ്ധിച്ചുവേണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ഭാരതപ്പുഴക്ക് മുകളിലെ കുറ്റിപ്പുറം പാലത്തിൽ നവം ബർ ആറുമുതൽ എട്ടുദിവസം രാത്രികാല ഗതാഗതം പൂർണ്ണമായി നിർത്തിവെയ്ക്കും രാത്രി ഒൻപത് മുതൽ രാവിലെ ആറുവരെയായിരിക്കും ഗതാഗതം നിർത്തി വെച്ച് അറ്റകുറ്റപണികൾ പൂർത്തിയാക്കുന്നത് പാല ത്തിൽ ഇൻ്റർലോക്ക് കട്ടകൾ പതിക്കും

മിനി പമ്പയോട് ചേർന്ന തകർന്ന റോഡിൽ ഇന്റർലോക്ക് ഇഷ്ടിക വിരിക്കാനും മന്ത്രി കെ ടി ജലീ ലിന്റെ അധ്യക്ഷതയിൽ കുറ്റിപ്പുറത്ത് ചേർന്ന യോഗ ത്തിൽ തീരുമാനമായി തിരുവനന്തപുരം ആനയറയിൽ ഓട്ടോ ഡ്രൈവറായ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തി ആനയറ സ്വദേശി വിപിനാണ് കൊല്ലപ്പെട്ടത്

ഗുണ്ടാ സംഘ ങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പൊലീസിന്റെ പ്രാഥമിക നിഗമനം

മീ നീളത്തിൽ മൃതിലും മൂന്ന് കി മീ റെയിൽ വേലിയുമാണ് നിർമ്മിക്കുക മലപ്പുറം അരീക്കോടിനടുത്ത് മൂർഖനാട് ചാലിയാർ പുഴയിൽ വെള്ളിയാഴ്ച ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി എറണാകുളം കൂന മ്മാവ് സ്വദേശി സിനോജിന്റെ മൃതദേഹമാണ് രാവിലെ കണ്ടെത്തിയത് ഇന്നലെ കൊച്ചിയിൽ അന്തരിച്ച മുൻ ഡി

ജി

ഇടുക്കി വട്ടവടയിലെ അപ്രതീക്ഷിതമായ കനത്ത മൃഴ ശീത

പച്ചക്കറി കളും ചെടികളും ചീഞ്ഞുപോയതുവഴി കർഷകർക്ക് ഏറെ സാമ്പത്തിക നഷ്ടം സംഭവിച്ചു

വൈസ് ചാൻസലർ ഡോ ഗോപിനാഥ് രവീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും തൃശൂർ പാലിയേക്കരിട്ടോൾ പ്ലാസക്കു മു ന്നിൽ നാട്ടുകാർ സമരം തുടങ്ങി നാട്ടു കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നുവെന്ന് ആരോപിച്ച് തദ്ദേശീയ ടോൾ വിരുദ്ധ ജനകീയ മുന്നണിയാണ് ടോൾ വലംവെച്ച് സമരം നടത്തുന്നത്